പൊൻരാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉന്നതതല കേന്ദ്രസംഘം ഇന്ന് കേര ളത്തിലെത്തും ദുരിതാശ്വാസപ്രവർത്തനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കാൻ ലോകബാങ്ക് എ ഡി ബി പ്രതിനിധിസംഘവുമായി ഗവൺമെന്റ് ഇന്ന് ചർച്ച നടത്തും പരിസ്ഥിതി ദുർബലപ്രദേശങ്ങളിൽ പുനരധിവാസം വേണമോയെന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയക്കെടുതിയിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുൻപ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചിതാഭസ്മ നിമജ്ജന യാത്ര

പ്രളയദുരന്തത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര ധനകാര്യ സഹ മന്ത്രി പൊൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉന്നതതലസംഘം ഇന്ന് കേരള ത്തിലെത്തും അഡീഷണൽ സെക്രട്ടറി ദേബാഷിഷ് പാണ്ഡ സാമ്പത്തിക ഉപ ദേഷ്ടാവ് എൻ ശ്രീനിവാസ റാവു എന്നിവരും പൊതുമേഖലാ ബാങ്കുകളിലെയും ഇൻഷുറൻസ് കമ്പനികളിലെയും ചെയർമാൻമാരും മാനേജിംഗ് ഡയറക്ടർമാരും നബാർഡ് പ്രതിനിധികളും ഉന്നതതല സംഘത്തിലുണ്ടാകും സംസ്ഥാനത്ത് ബാങ്കു കളും ഇൻഷുറൻസ് കമ്പനികളും നടപ്പാക്കിയ ദുരിതാശ്ചാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ സംഘം അവലോകനം ചെയ്യും

ലോകബാ ങ്കിന്റെ ഇന്ത്യയിലെ തലവൻ നിഷാം അബ്ദു ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയിലെ മേധാവി ഖെൻഷി യൊക്കോയാമ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയത് പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് വായ്പ ലഭിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സംഘവുമായി ഇന്ന് ചർച്ച നടത്തും മുഖ്യമന്ത്രി പിണ റായി വിജയൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പുനരധിവാസം നടത്തണോ യെന്നത് പ്രധാന പ്രശ്നമാണെന്നും അതേക്കുറിച്ച് ഗവൺമെന്റ് ആലോചന തുട ങ്ങിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങളുടെ ജീവനോ പാധി ഉറപ്പുവരുത്തേണ്ടത് പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രധാനഘടകമാ ണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

വിവിധ മേഖ്ലകളിൽ നിന്ന് ഗവൺമെന്റിന് വലിയ തോതിൽ സഹായം ലഭിക്കുന്നുണ്ട് ലോകത്തെ വിവിധ ജനസമൂഹം സഹായവും പിന്തുണയുമായി രംഗത്തുണ്ട് വിഭവസമാഹരണത്തിനൊപ്പം ഇവയെല്ലാം ചേരു മ്പോൾ ദുരന്തം മറികടക്കാൻ ആവശ്യമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാനാ വുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യങ്ങൾ പുഴകളിലേക്കും നദികളിലേക്കും തിരികെ നിക്ഷേപിക്കുന്നവർക്കെ തിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലയാളി ബിസിന സ്സുകാരും വ്യവസായികളും വരുമാനത്തിന്റെ ഒരു ഭാഗം പുനർനിർമ്മാണ പ്രക്രിയ യ്ക്കായി സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ഓഖി ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലും മറ്റുമായി ലഭിച്ച തുക മുഴുവൻ മത്സ്യബന്ധന മേഖലയ്ക്കും തൊഴിലാളികൾക്കു മായാണ് ചെലവഴിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

പ്രളയത്തിൽ തകരാറിലായ റേഷൻ വിതരണം പൂർവ സ്ഥിതിയിലാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായി മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു

റേഷൻ കാർഡുകളുടെയും മറ്റു രേഖകളുടെയും വിതരണം വേഗത്തിലാക്കുന്നതിന് താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്തും ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ബോട്ടുകൾ ഉപയോഗിച്ച് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പ്രളയകെടുതിയിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാ ക്കാൻ കേന്ദ്ര സംസ്ഥാനഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു

പ്രളയ ദുരന്തത്തെ ജാതി മത വർഗ്ഗ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നിച്ച് നേരിട്ട കേരളം രാജ്യത്തിന് മാതൃ കയാണെന്ന് രാഹുൽ പറഞ്ഞു ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലെ ദുര ന്തബാധിത പ്രദേശങ്ങളും ദുരിതാശാസ ക്യാമ്പുകളും സന്ദർശിച്ച രാഹുൽഗാന്ധി ദുരിതാശ്ചാസ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു ഇന്നു രാവിലെ പ്രത്യേക വിമാനത്തിൽ കോഴിക്കോ ട്ടെത്തുന്ന രാഹുൽഗാന്ധി ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോകും ജില്ലയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ഉച്ചയോടെ കോഴിക്കോട് തിരിച്ചെത്തി അദ്ദേഹം ഡൽഹിക്ക് മടങ്ങും ് ് ് ് ് ് ് കാലാവസ്ഥ പ്രവചനത്തിൽ വീഴ്ച വന്നതും ഡാമുകൾ യഥാസമയം തുറന്നു വിടാതെ ജലം സംഭരിച്ചുവെച്ചതുമാണ് കേരളത്തിലെ പ്രളയത്തിന് കാര ണമായതെന്ന് ഡി

മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ പൊന്നാനിയിൽ പറഞ്ഞു

കേരളത്തിന് ആവ ശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പുനൽകിയ സാഹച ര്യത്തിൽ വിദേശ സഹായത്തിന്റെ ആവശ്യമില്ലെന്നും ശ്രീധരൻ പറഞ്ഞു പുതിയ കേരളം പടുത്തുയർത്താൻ പൂർണ്ണ അധികാരമുള്ള സമിതിയെ നിയോഗിക്കണ മെന്നും ഓരോ വകുപ്പിനും സ്വതന്ത്ര ചുമതല നൽകണമെന്നും ശ്രീധരൻ അഭിപ്രാ യപ്പെട്ടു ഓണാവധി കഴിഞ്ഞ് സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും പ്രള യത്തെ തുടർന്ന് ദുരിതാശ്ചാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ വൃത്തിയാക്കി പഠനയോഗ്യമാക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു

രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രശസ്തിപത്രം മുഖ്യമന്ത്രി സമ്മാനിക്കും

വളം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് പൂർണ്ണമായും പ്രവർത്തനം പുനരാരംഭിക്കും നില വിലെ സമയപട്ടിക അനുസരിച്ചാവും വിമാനകമ്പനികൾ സർവ്വീസ് നടത്തുക

ഇന്നലെ അര ലക്ഷത്തോളം പേരാണ് വീടും പരിസർവും ശുചിയാക്കാൻ രംഗത്തിറങ്ങിയത്

യിൽപ്പെട്ടതായി പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു

സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ രാവിലെ കാസർകോട്ട് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ സഞ്ചരിച്ച് വൈകീട്ട് കോഴിക്കോട്ട് സമാപിക്കും അടുത്ത മാസം ഒന്നിന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും അന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ച് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറം തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്നിവിടങ്ങളിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യും

ഈ ഇനത്തിൽ മലയാളിയായ ജിൻസൺ ജോൺസൺ വെള്ളി കരസ്ഥമാക്കി മലയാളിയായ കെ

റ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നത്തെ കോഴിക്കോട് തൃശൂർ പാസഞ്ചർ ഷൊർണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുമെന്നും തൃശൂർ കോഴിക്കോട് പാസഞ്ചർ ഷൊർണ്ണൂരിൽനിന്നാവും യാത്ര പുറപ്പെടുകയെന്നും റെയിൽവെ അറിയിച്ചു ് ് ് ് ് ് ് പള്ളിപ്പുറത്തിനും കുറ്റിപ്പുറത്തിനുമിടയിൽ പാലത്തിന്റെ ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാൽ നാളെ ഏതാനും ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി മംഗലുരു കോയമ്പത്തൂർ മംഗലുരു ഫാസ്റ്റ് പാസഞ്ചറും എറണാകുളം കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസും ഷൊർണ്ണൂരിനും കണ്ണൂരിനുമിടയിൽ ഓടി ല്ല നാഗർകോവിൽ മംഗലുരു നാഗർകോവിൽ ഏറനാട് എക്സ്പ്രസ് ്കോഴിക്കോ ടിനുംഎറണാകുളത്തിനുമിടയിൽ സർവ്വീസ് നടത്തില്ലെന്നും റെയിൽവെ അറിയിച്ചു

കെട്ടിടത്തിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന നാല് കാറുകൾക്ക് കേടുപറ്റി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഓഫീസിൽ നിന്ന് മൂന്ന് നാടൻ ബോംബുകളും ആയുധങ്ങളും കണ്ടെടുത്തു സംഭവത്തെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് മുസ്തിം ലീഗ് നേതാക്കൾ ആരോപിച്ചു

ജനവാസമേഖലകളിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായി

മുണ്ടൂരിൽ എത്തിയ കാട്ടാനകൾ നിരവധി തവണ ദേശീയപാത മുറിച്ചുകടക്കാൻ ശ്രമം നടത്തി കണ്ണൂർ മട്ടന്നൂരിന് അടുത്ത് ചാവശ്ശേരിയിൽ സ്ഥകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു

കണ്ണൂർ പിണറായിയിലെ കൂട്ടക്കൊലക്കേസിൽ റിമാൻഡിൽ കഴിയവെ പ്രതി സൌമൃ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തര മേഖലാ ജയിൽ ഡിഐജി ഇന്ന് കണ്ണൂരിലെത്തും ജയിലിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിഐജി അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് ജയിലിനുള്ളിലെ കശുമാവിൻ കൊമ്പിൽ സൌമ്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്

നിലവിൽ ചെറിയ ബസുകളാണ് സർവീസ് നടത്തുന്നത് മലപ്പുറം ജില്ലയിലെ എടയാറ്റൂരിൽ പിതൃസഹോദരൻ കടലുണ്ടി പുഴ യിൽ എറിഞ്ഞ ഒമ്പതുവയസ്സുകാരൻ ഷഹീനുവേണ്ടി കടലിലും പുഴയിലും പൊലീസ് പരിശോധന നടത്തി